നിക്ഷേപാനുകൂല നടപടിക്രിമങ്ങൾ വേഗത്തിലാക്കാൻ ശ്രദ്ധ വേണമെന്ന് പ്രധാനമന്ത്രി ന്യരേന്ദ്രമോദി

റിസർവ് ബാങ്കിന്റെ സ്സ്ൻട്രൽ ബോർഡ് യോഗം ഇന്ന് പുതിയ ഗവർണർ ശക്തികാന്ത് ദാസിന്റെ അദ്ധ്യക്ഷതയിൽ ചേരും

പിരിച്ചുവിട്ട നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് ശ്രീലങ്കൻ സൂപ്രീം കോടതി

ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യയുടെ ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് പി

സിന്ധു ഇന്ന് അമേരിക്കയുടെ ഷാങ്ബെയ്വെനിനെ നേരിടും

ആന്റണിയാണ് ഭോപ്പാലിൽ ഇന്നലെ നടന്ന യോഗത്തിൽ ശ്രീ

രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പരിഗണനയിലാണ് ന്യൂഡൽഹിയിൽ ക്ടോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ തിരക്കിട്ടു ചർച്ചയാണ് ഇന്നലെ നടന്നത് മദ്ധ്യപ്രദേശ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനായി ശ്രീ

ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരുമായി ഒറ്റയ്ക്ക് ഒറ്റിയ്ക്കുള്ള ചർച്ചകൾ ശ്രീ രാഹുൽ ഗാന്ധി നടത്തി കൂടാതെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനായി ശ്രീ

രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കണമെന്നു പുതുതായി തെരഞ്ഞെടുപ്പെട്ട നിയമസഭാ സാമാജികർ ഐകകണ്ഠേന പ്രമേയം പാസ്സായിക്കിയിരുന്നു

കഴിഞ്ഞ രാത്രിയിലാണ് ശ്രീ

ചന്ദ്രശേഖര റാവുവിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു വരും ദിവസങ്ങളിൽ മന്ത്രിസഭാ വികസനമുണ്ടാകുമെന്നാണ് സൂചന

ഇത് വ്യാവസായിക വളർച്ച വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെറുകിട മേഖലയുടെ ഉയർച്ചയ്ക്കും സാധാരണ ജനങ്ങളുടെ ജീവിത മേന്മയ്ക്കും വഴിതെളിയിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂഡൽഹിയിൽ നിക്ഷേപനുകൂല സാഹചര്യം വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളുടെ പുരോഗതി ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ പുതിയ നിക്ഷേപാനുകൂല സാഹചര്യങ്ങൾ ലോക്ട് അതീവ താല്പര്യത്തോടെയാണ് വീക്ഷിക്കുന്നത്തെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

വെങ്കയ്യ നായിഡു

പാർലമെന്റിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന നടപടികൾ അംഗങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ജനങ്ങൾക്ക് പാർലമെന്റിലുള്ള വിശ്വാസം കാത്തുസൂക്ഷിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

മികച്ച സംഭാവകൾക്കുള്ള ആജീവനാന്ത പുരസ്കാരം ഡോ മുരളി മനോഹർ ജോഷിക്കും ശരത് പവാറിനും സമ്മാനിച്ചു

ന്യൂഡൽഹിയിൽ പൊതു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കാർഷികാവശിഷ്ടങ്ങൾ ശരിയായ രീതിയിൽ നിർമാർജ്ജനം ചെയ്യാൻ വേണ്ട സാമ്പത്തിക സഹായം കർഷകർക്ക് ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലെ കാർഷികാവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ നിർമാർജ്ജനം ചെയ്യുന്നതിന് ഈ മേഖലയിൽ യന്ത്രവൽകരണം പ്രോത്സാഹിപ്പിക്കും

ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ നൽകാത്തതിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി ഫട്നാവിസിന് നോട്ടീസ് അയച്ചിരുന്നു

ബജേന്ദ്രപാൽസിങ് നിലവിൽ എഫ്

ഐ

ഭരണ നിർവ്വഹണ കൌൺസിൽ വൈസ് ചെയർമാനാണ് ഈ വർഷം ഒക്ടോബറിൽ നടൻ അനുപം ഖേർ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ നിയമനം ആവശ്യമായി വന്നത്

ഐ യുടെ പുതിയ ഗവർണർ ശക്തികാന്ത ദാസയുടെ അദ്ധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത് റിസർവ് ബാങ്കിന്റെ നയരൂപീകരണത്തിൽ സെൻട്രൽ ബോർഡിന്റെ പങ്കിനെകുറിച്ച് ചർച്ച ചെയ്യുകയാണ് യോഗത്തിന്റെ മുഖ്യ കാര്യപരിപാടി കഴിഞ്ഞ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളുടെ പുരോഗതിയും യ്യോഗ്ം അവലോകനം ചെയ്യും സൂക്ഷ്മ ചെറുകിട ഇടത്തിരും സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗ്രം ചർച്ച ചെയ്യും റിസർവ് ബാങ്കിന്റെ സ്വയംഭരണവും പ്പിശ്ചാസ്യതയും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്ന് ശക്തികാന്ത ദാസ ആർ

ഐ യുടെ ഗവർണറായി ചുമതലയേറ്റതിന് ശേഷം പറഞ്ഞു

നാലര വർഷ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പാർലമെന്റ് പിരിച്ചുവിടാൻ കഴിയില്ലെന്ന് ഏഴംഗ ബെഞ്ച് ഐകക്ണ്ഠേന വൃക്തമാക്കി പുറത്താക്കപ്പെട്ട ശ്രീലങ്കൻ പ്രധാനമന്ത്രി രനിൽ വിക്രമസിംഗെയുടെ യുണൈറ്റഡ് നാഷണൽ പാർട്ടി വിധിയെ സ്വാഗതം ചെയ്യുകയും വിധി ഉടൻതന്നെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്ത്ലത്തിൽ ശ്രീലങ്കയിലെ രാഷ്ട്രീയ പ്രതിസന്ധി ഉടൻ പരിഹരിക്കപ്പെടുമോ എന്ന് വ്യക്തമായില്ലെന്നും എന്നാൽ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിൽക്കുന്നതായും പ്രസിഡന്റ് മൈത്രിപാല സിരിസേന അസന്നിഗ്ധമായി അറിയിച്ചതായും ആകാശവാണി കൊളംബോ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

രാഷ്ട്രീയ പ്രതിരോധ സുരക്ഷ വ്യാപാര വികസന സഹകരണം തുടങ്ങി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു മ്യാൻമറിന്റെ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് രാഷ്ട്രപതി ഉറപ്പു നൽകി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനു പിന്തുണ നൽകണമെന്ന് മ്യാൻമർ അഭ്യർത്ഥിച്ചു

ഇന്നലെ നടന്ന മത്സരത്തിൽ പി വി സിന്ധു തായ്വാന്റെ ഒന്നാം നമ്പർ താരം തായ്സുയിങ്ങിനെ തോൽപ്പിച്ചു

പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ സമീർ വർമ്മ തായ്ലന്റിന്റെ കാണ്ടഫോണിനെ നേരിടും

ഭുവനേശ്വറിലാണ് മത്സരങ്ങൾ നടക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു

ഇന്ന് മത്സരങ്ങളില്ല നാളെ സെമി ഫൈനലും ഞായറാഴ്ച ഫൈനലും നടക്കും

പാർട്ടി സുമര്പുന്തലിന് സമീപം ആത്മഹത്യ ചെയ്ത ആളോടുള്ള ആദരസൂച്കമായാണ് ബിജെപി ഇന്ന് സംസ്ഥാനത്തും മാഹിയിലും പകൽ ഹർത്താൽ നടത്തുന്നത്